പശ്ചിമ ബംഗാൾ സന്ദർശനത്തിൽ വിപിധ വികസന പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കും

സംസ്ഥാനങ്ങളോട്ട് കേന്ദ്രം

നൈജീരിയയിൽ സൈനിക വിമാനം തകർന്ന് ഏഴ് മരണം

എൽ ഫുട്ബോളിൽ ബംഗളുരു എഫ്

തോൽപ്പിച്ച് എഫ് സി ഗോവ

അസമിലെ ധേമാജിയിൽ എണ്ണ പ്രകൃതി വാതക മേഖലകളിലെ സുപ്രധാന പദ്ധതികൾ അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും

ഇന്ത്യൻ ഓയിൽ ബൊംഗൈഗാവ് റിഫൈനറിയിലെ യൂണിറ്റ് മധുബനിലെ സെക്കൻഡറി ടാങ്ക് ഫാം എന്നിവയും പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും വൈകിട്ട് പശ്ചിമബംഗാളിലെ ഹൂഗ്ലിയിൽ റെയിൽവേ പദ്ധതികൾക്കും ശ്രീ നരേന്ദ്ര മോദി തുടക്കം കുറിക്കും

ഐ ടി ഖരഗ്പൂറിൽ ഡോ ശ്യാമിപ്സാദ് മുഖർജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആന്റ് റീസെർച്ചിന്റെ ഉദ്ഘാടനം നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദ്ദി നീർവ്വഹിക്കും

ഐ

കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാ്ലയത്തിന്റെ സഹായത്തോടെയാണ് ഐ

ടി യിൽ പുതിയ ആശുപത്രി നിർമ്മിച്ചത്

നാരായണ സ്വാമി ഇന്ന് വിശ്വാസവോട്ട് തേടും

രാവിലെ പത്ത് മണിക്കാണ് നിയമസഭാ സമ്മേളനം ഇന്ന് വൈകിട്ട് അഞ്ച് മണിയോടെ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കണമെന്ന് പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ തമിഴ്സൈ സൌന്ദര രാജൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു വിശ്വാസവോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ ഭരണകക്ഷിയായ കോൺഗ്രസിലെ രണ്ട് എം

എ മാർ കൂടി ഇന്നലെ രാജിവച്ചു നേരത്തെ നാല് എം

എ മാർ രാജിവച്ചിരുന്നു പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഒരു എം

ന്യൂസ് ഡെസ്ക് ആകാശവാണി

മൌറീഷ്യസ് വിദേശകാരി ്മ്യന്തിയുമായും ശ്രീ

ഉഭയകക്ഷി ബന്ധങ്ങളിൽ ചർച്ചയ്ക്കു പുറമെ ഇന്ത്യ മൌറീഷ്യസിൽ ആവിഷ്ക്കരിക്കുന്ന അടിസ്ഥാന സൌകര്യ പദ്ധതികളുടെ വിവിധ വശങ്ങൾ കേന്ദ്രമന്ത്രി അവലോകനം ചെയ്യും

കേരളം മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് ഗോവ ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ പ്രതിവാര രോഗസ്ഥിരീകരണ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണെന്ന് ആരോഗ്യമന്ത്രാലയം വൃക്തമാക്കി സുരക്ഷാ നടപടികൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായി ആർ

ത്വരിത ആന്റിജൻ പരിശോധനയിലൂടെ രോഗബാധയില്ലെന്ന് കാണുന്നവർക്ക് ആർ

പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് തെലങ്കാന ഉത്തരാഖണ്ഡ് തമിഴ്നാട് ജമ്മു കശ്മീർ ഉൾപ്പെടെ നിരവധി സംസ്ഥി്നങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും നെല്ല് സംഭരണം സുശ്രമ്മായി നടക്കുന്നതായി കേന്ദ്ര ഉപഭോക്തൃകാര്യ ഭക്ഷ്യപൊത്തുവീതരണ മന്ത്രാലയം അറിയിച്ചു

സംസ്ഥാനത്തെ കൊല്ലം കുണ്ടറ റെയിൽവെസ്റ്റേഷനുകളിൽ പൂർത്തിയാക്കിയ മേൽപ്പാലങ്ങൾ ശ്രീ പീയുഷ് ഗോയൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു

അബൂജ വിമാനത്താവളത്തിലേക്ക് മടങ്ങവെയാണ് നൈജീരിയൻ എയർഫോഴ്സ് വിമാനം ബീച്ച് ക്രാഫ്റ്റ് കിംഗ് എയർ അപകടത്തിൽപ്പെട്ടത് രാജ്യത്തിന്റെ മധ്യ വടക്കൻ മേഖലയായ നൈജറിന്റെ തലസ്ഥാനമായ മിനയിൽ വച്ച് നേരത്തെ എഞ്ചിൻ തകരാർ റിപ്പോർട്ട് ചെയ്തിരുന്നു വ്യോമ മേധാവി സംഭവത്തിൽ അടിയന്തിര അന്വേഷണത്തിന് ഉത്തരവിട്ടു

പശ്ചിമബംഗാളിലെ ഡാർജിലിങ്ങിൽ നടക്കുന്ന മെഗാ ഹോം സ്റ്റേ വികസന പരിശീലന ശില്പശാല കേന്ദ്ര ടൂറിസം മന്ത്രി പ്രഹ്ളാദ് സിങ് പട്ടേൽ ഉദ്ഘാടനം ചെയ്യും

രാജ്യത്തെ സർവകലാശാല സംഘടനയുടെ സഹായത്തോടെ ഈ വർഷം അവസാനം ബംഗളുരുവിൽ മത്സരം സംഘടിപ്പിക്കുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു

കഴിഞ്ഞ വർഷം ഭുവനേശ്വറിലാണ് ഖേലോ ഇന്ത്യ മത്സരങ്ങൾ നടന്നത്

ഖേലോ ഇന്തൃയ്ക്ക് ആവശൃമായ എല്ലാ പിന്തുണയും നൽകുമെന്ന് കർണ്ണാടക മുഖൃമന്ത്രി ബി

ബംഗളുരു സ്പോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ കൃാമ്പസിലെ നാല് പുതിയ കായിക വേദികളുടെ ഉദ്ഘാടനം ഇന്ന് ശ്രീ കിരൺ റിജിജു നിർവ്വഹിക്കും ഫിറ്റ് ഇന്ത്യയുടെ ഭാഗമായി ഫിറ്റ് ബംഗളുരു പരിപാടിയിലും ഇന്ന് അദ്ദേഹം പങ്കെടുക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി

മേളയുടെ മൂന്നാം പതിപ്പ് ചൊവ്വാഴ്ച തലശ്ശേരിയിൽ തുടങ്ങും

വമ്പിച്ച പ്രേക്ഷക പിന്തുണയാണ് മേളയ്ക്ക് ലഭിച്ചത്

ഒന്നിന്റെതിരെ രണ്ട് ഗോളുകൾക്കാണ് എഫ്

സി ഗോവ മൂന്നാം സ്ഥാനത്തേക്കുയർന്നു

പുരുഷ ഡബിൾസിൽ ഒൻപതാം സീഡ് ക്രൊയറ്റ് സ്തോവാക് ജോഡി ഇവാൻ ഡോഡിഗും ഫിലിപ്പ് പോളാസെക്കും കിരീടം നേടി